സി ട്രെയിനുകൾ കുടി ആരംഭിക്കുമെന്ന് കേന്ദ്രമന്ത്രി പിയൂഷ്ഗോയൽ

മേഖലയിൽ നിന്ന് ഇന്ന് ആറ് വിമാനങ്ങൾ എത്തും

കേരളത്തിൽ കെ എസ് ആർ ടി സി ജില്ലാന്തര സർവ്വീസുകൾ പുനരാരംഭിച്ചു ബോട്ട് സർവ്വീസുകൾക്കും തുടക്കം

ബ്രസീലിൽ മരണനിരക്ക് ഉയരുന്നു

പശ്ചിമബംഗാൾ ഒഡീഷാതീരത്ത് കനത്ത ജാഗ്രയാണ് ഉള്ളത്

അതിനിടെ ഉം പുൻ ചുഴലിക്കാറ്റിനെ നേരിടാനുള്ള മുന്നൊരുക്കങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിലയിരുത്തി രക്ഷാ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി എൻ

കടലാക്രമണ സാധ്യതയുള്ള തീരദേശ വാസികളും ജാഗ്രത പാലിക്കണം

വിശദാംശങ്ങളുമായി ആകാശവാണി തിരുച്ചിറപ്പള്ളി വാർത്താവിഭാഗം മേധാവി ഡോ

ഓറഞ്ച് ഗ്രീൻ സോണുകളിലുള്ള ഭൂന്താശുപത്രികൾ തുറക്കാൻ തടസ്സമില്ല

സി ട്രെയിനുകൾ കൂടി സർവ്വീസ് ആരംഭിക്കുമെന്ന് കേന്ദ്ര റെയിൽമന്ത്രി പിയൂഷ്ഗോയൽ

കുടുങ്ങിക്കിടക്കുന്ന കുടിയേറ്റത്തൊഴിലാളികൾക്ക് യാത്രാ ആരംഭിക്കേണ്ട സ്റ്റേഷന്റെ വിവരം ഉൾപ്പെടെ രജിസ്റ്റർ ലിസ്റ്റ് കൈമാറാൻ അദ്ദേഹം സംസ്ഥാന സർക്കാരുകളോട് അഭ്യർത്ഥിച്ചു പ്രത്യേക ശ്രമിക് ട്രെയിനുകൾ ഏർപ്പാടാക്കാനാണിത്

ബംഗളൂരുവിൽ നിന്ട്ടുള്ള് പ്രത്യേക നോൺ എ സി ട്രെയിൻ നാളെ മുതൽ സർവ്വീസ് ആരംഭിക്കും

കോവിഡ് ബാധയുണ്ടായാൽ ഇവരുടെ വിവരങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ ഇതാവശ്യമാണെന്നും അദ്ദേഹം ആകാശവാണിയോട് പറഞ്ഞു

അവശ്ചിസ്സേവന വിഭാഗത്തിലുള്ളവർ മുംബൈയിലേക്കും തീരുപ്പും നടത്തുന്ന യാത്രകൾ കോവിഡ് വ്യാപനത്തിനു കാരണമാകുന്നുവെന്നും അതിനാൽ യാത്ര ഒഴിവാക്കണമെന്നും ആവശ്യപ്പെട്ട് ഒരു പാൽഘർ നിവാസിയാണ് ഹൈക്കോടതിയെ സമീപിച്ചത്

ലണ്ടൻ മനില ദുബായ് എന്നിവിടങ്ങളിൽ നിന്ന് പ്രവാസികളുമായി മൂന്ന് വിമാനങ്ങൾ കൊച്ചിയിലെത്തും

എസ്

സി ഹയർസെക്കൻ്ററി പരീക്ഷകൾക്ക് സൌകര്യപ്രദമായ പരീക്ഷാകേന്ദ്രം തെരഞ്ഞെടുക്കാനവസരം ഗൾഫിലും മറ്റ് വിദേശരാജൃങ്ങളിലും പഠിച്ചവർ ഇപ്പോൾ നാട്ടിലാണെങ്കിൽ ഇവിടെ സൌകര്യപ്രദമായ കേന്ദ്രത്തിൽ പരീക്ഷയെഴുതാം

നാളെയും ഇങ്ങനെ കിറ്റ് വാങ്ങാം

രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷം ലോകത്ത് ഇതാദൃമായാണ് കാർബൺ ബഹിർഗമനം ഇത്രയും കുറയുന്നത്